മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ പി റാവുത്തറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തി

മിസോറാമിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷായും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇന്നലെ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു അധികാരത്തിലെത്തിയാൽ എല്ലാ ദേശീയപാതകളും പുനരുദ്ധരിക്കുമെന്ന് ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു ദുർബല ജനവിഭാഗങ്ങൾക്ക് കിലോഗ്രാമിന് ഒരു രൂപ നിരക്കിൽ അരി ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിലൂടെ സംസ്ഥാനത്ത് കാർഷിക ഫലവൃക്ഷ ഉൽപാദനത്തിൽ അഞ്ച് ശതമാനം വർദ്ധനവ് ഉണ്ടായതായി ഐസ്വാളിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവെ ശ്രീ രാഹുൽഗാന്ധി പറഞ്ഞു

അതിനിടെ രാജസ്ഥാനിലെയും തെലങ്കാനയിലെയും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായി വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രികൃ പിൻവലിക്കാനുള്ള അവസാന ദിനം

വിശാഖപട്ടണത്ത് ഇന്ത്യ സിംഗപ്പൂർ പ്രതിരോധ മന്ത്രിമാരുടെ മൂന്നാമത് ഉച്ചകോടിയുടെ സമാപന ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ അന്താരാഷ്ട്ര നിയമങ്ങളിലൂന്നിയുള്ള സമാധാനപരമായ രീതികളിലൂടെ മാത്രമേ തർക്കങ്ങൾ പരിഹരിക്കപ്പെടൂ എന്നതാണ് ഇന്ത്യയുടെ വിശ്വാസമെന്ന് ഇരുരാജ്യങ്ങളും തമ്മിൽ സംയുക്ത സൈനികാഭ്യാസത്തിനുള്ള ഉഭയകക്ഷി കരാർ പുതുക്കുക എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം

പരിപാടിയുടെ അൻപതാം പതിപ്പാണിത് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കാം

മൻ കി ബാത്തിലൂടെ നിരവധി പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് ശ്രീ മോദി പൊതുജനങ്ങളുമായി സംവദിച്ചു വരികയാണ്

നബിദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും ആശംസകൾ നേർന്നു രാജ്യത്തെ സഹോദരീ സഹോദരൻമാർക്കും മുസ്തീം മറ്റുള്ളവർക്കും ശുഭാശംസ നേരുന്നതായി രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു നബിയുടെ വചനങ്ങൾ സമാധാനത്തിനും സാഹോദരൃത്തിനും മാർഗ്ഗദീപമായിരിക്കുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

കേവലം നാലര വർഷം കൊണ്ട് വൃക്തമായ മാറ്റം കൊണ്ടുവരാൻ ഗവൺമെന്റിനായതായി മന്ത്രി പറഞ്ഞു

സിഡ്നിയിലെ വിവിധ ചടങ്ങുകളിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും തുടർന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണുമായി ചർച്ച നടത്തുന്ന ശ്രീ കോവിന്ദ് പ്രധാന കരാറുകളിലും ഒപ്പുവയ്ക്കും

നിരോധനം ഏർപ്പെടുത്തിയതിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികളിലാണ് കോടതി ഇക്കാര്യം ആവശ്യപ്പെട്ടത് നിരോധനാജ്ഞ ആർക്കൊക്കെ ബാധിക്കുമെന്ന കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം ദേവസം ബഞ്ച് കേസ് വീണ്ടും പരിഗണിക്കും

നിലയ്ക്കലിൽ അറസ്റ്റീലായി റിമാന്റിൽ കഴിയുന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും പത്തനംതിട്ട കോടതി ജാമ്യം അനുവദിച്ചു

പോലീസ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഒട്ടേറെ നേതാക്കൾ ശബരിമല സന്ദർശിക്കുകയാണ് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ പൊൻരാധാകൃഷ്ണൻ ശബരിമലയിൽ ദർശനം നടത്തുകയാണ്

ജെ

ജനറൽ സെക്രട്ടറി എ

ഇന്നലെ രാത്രിയും നാമജപ പ്രതിഷേധം നടന്നിരുന്നു

ശബരിമലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കയായിരുന്നു അദ്ദേഹം തീർഥ്യാടകർക്ക് ഒരു വിധ അടിസ്ഥാന സൌകര്യങ്ങളും ശബരിമയിൽ ഒരുക്കിയിട്ടില്ലന്നുംശബരിമല് പ്രസ്ത്വിഷയത്തിൽ മുഖമന്ത്രി തുടർച്ചയായി വ്യാജപ്രചാരണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

പനാജിയിൽ നിന്നും ചലച്ചിത്രോൽസവത്തിന്റെ വിശേഷങ്ങളുമായി പ്രമുഖ ചലച്ചിത്ര നിരൂപകൻ ചന്ദ്രശേഖർ

വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലാണ് ഇന്തൃ ഇറങ്ങുന്നത്

കാബൂളിൽ വിമാനത്താവളത്തിന് സമീപമുള്ള റോഡിൽ മതപരമായ ചടങ്ങിനിടെയാണ് സ്ഫോടനമുണ്ടായത് നബിദിനാഘോഷം നടന്ന ഹാളിൽ നിരവധി പേർ പങ്കെടുത്തിരുന്നു